റഫാൽ യുദ്ധ വിമാന കേസ് സംബന്ധിച്ച് രാജ്യരക്ഷാ മന്ത്രാലയം സുപ്രീംകോടതിയിൽ സത്യവാങ്മൂലം സമർപ്പിച്ചു

മേഖലയായി പ്രഖ്യാപിക്കണമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ബി ജെ

തീവ്രവാദിയായി പ്രഖ്യാപിക്കണമെന്ന് ആവർത്തിച്ച് അമേരിക്ക

സത്യവാങ്മൂലം സമർപ്പിക്കാൻ അനുമതി നൽകണമെന്ന് ന്റേഴത്തേ കേന്ദ്രം ആവശ്യപ്പെട്ടത് പരമോന്നത കോടതി ്ടൂന്ുവദിക്കുകയായിരുന്നു റഫാൽ കരാർ വിധി പുനഃപരിശ്ലോധീക്കണമെന്ന ഹർജിക്കാരുടെ ആവശ്യം ദേശീയ സുരക്ഷ്ട്രെയ് സംബന്ധിക്കുന്നതും യുദ്ധവിമാനങ്ങളുടെ കാര്യക്ഷമത സംബന്ധിക്കുന്നതുമാണെന്ന് ഗവൺമെന്റ് കോടതിയ്ക്ക് അറിയിച്ചു കേസിൽ ഹർജി നൽകിയിട്ടുള്ള മുൻ കേന്ദ്ര മന്ത്രിമാരായ യശ്വന്ത് സിൻഹ അരുൺ ഷൂരി അഡ്വ പ്രശാന്ത് ഭൂഷൺ എന്നിവർ പരമപ്രധാനമായ വിവരങ്ങൾ ചോർത്തി കുറ്റക്കാരായിട്ടുള്ളവരാണെന്ന് ഗവൺമെന്റ് സത്യവാങ്മൂലത്തിൽ അറിയിച്ചിട്ടുണ്ട് ദേശീയ സുരക്ഷയെ സംബന്ധിച്ചും പ്രതിരോധ രംഗം സംബന്ധിച്ചും അപൂർണ്ണമായ ചിത്രം നൽകുന്നതിന് ഗവൺമെന്റ് രേഖകൾ അനധികൃതമായ രീതിയിൽ കൈക്കലാക്കി ഹർജിക്കാർ ദുരുപയോഗപ്പെടുത്തി ഗവൺമെന്റ് കോടതിയിൽ അറിയിച്ചു രേഖകൾ ചോർന്നതെങ്ങനെയെന്ന് കണ്ടെത്തുന്നതിനുള്ള ആഭ്യന്തര അന്വേഷണം നടക്കുകയാണെന്നും കേന്ദ്രം സത്യവാങ്മൂലത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്

കരാറിനെ ചോദ്യം ചെയ്തും കരാറിലെ ക്രമക്കേടുകൾ പ്രത്യേക അന്വേഷണ സംഘം അന്വേഷിക്കണമെന്നും ആവശ്യപ്പെട്ടുള്ള ഹർജികൾ സുപ്രീംകോടതി നേരത്തേ തള്ളിയിരുന്നു

രണ്ടു ഘട്ടമായിട്ടായിരിക്കും വികസനം സുരക്ഷയാണ് ഇന്ത്യയുടെ പ്രഥമ പരിഗണന എന്നും കർത്താർപൂർ സാഹിബ് തീർത്ഥാടനം സംബന്ധിച്ച് മാത്രമാണ് പാകിസ്ഥാനുമായി ചർച്ച നടത്തുകയെന്നും ഇന്ത്യ വ്യക്തമാക്കി

ഭരണ പ്രതിപക്ഷ കക്ഷി ഭേദമന്യേ ഇക്കാര്യത്തിൽ എല്ലാവരും ശ്രദ്ധചെലുത്തണമെന്ന് ട്വിറ്ററിലൂടെ പ്രധാനമന്ത്രി ആവശ്യപ്പെട്ടു ക്രിക്കറ്റ് സിനിമാ താരങ്ങളോടും മാധ്യമങ്ങളോടും വോട്ടർ ബോധവൽക്കരണ പരിപാടികളിൽ അണിചേരാൻ പ്രധാനമന്ത്രി നിർദ്ദേശിച്ചു വോട്ട് അവകാശം ജനാധിപത്യ ക്രമത്തിൽ സുപ്രധാന കടമകൂടിയാന്നെും ശ്രീ നരേന്ദ്രമോദി ഓർമ്മിപ്പിച്ചു

പി സംഘം ന്യൂഡൽഹിയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷണറുമായി കൂടിക്കാഴ്ച നടത്തി പശ്ചിമബംഗാളിനെ അതീവ പ്രശ്നബാധിത മേഖലയായി പ്രഖ്യാപിക്കണമെന്ന് കമ്മീഷനോട് അഭ്യർത്ഥിച്ചതായി ശ്രീ

തെരഞ്ഞെടുപ്പ് ജോലിയിൽ നിന്നും മുൻ കൊൽക്കത്ത പോലീസ് കമ്മീഷണർ രാജീവ് കുമാറിനെ നീക്കണമെന്നും ബി ജെ പി ആവശ്യപ്പെട്ടു

വിശദാംശങ്ങളുമായി കൃഷ്ണ

കളളപ്പണം വെളുപ്പിക്കൽ കേസ് തടയൽ നിയമമനുസരിച്ച് സി ബി

മുസ്സാപൂരിൽ പ്രവർത്തിച്ചിരുന്ന സേവ സങ്കൽപ്പ് ഏവം വികാസ് സമിതി ക്രമക്കേടുകൾ നടത്തിയിരുന്നത്യായും നിരവധി പെൺകുട്ടികൾ പീഢനത്തിനിരയായരായുട്ടു മർദ്ദനത്തിന് വിവിദേയമായതായു കുറ്റപത്രത്തിൽ പറയുന്നു അഭയ കേന്ദ്രത്തിന്റെ മേൽനോട്ടം വഹിച്ചിരുന്ന പ്രജേഷ് താക്കൂറിന് എതിരെയും ആരോപണങ്ങളുണ്ട് ന്യൂസ് ഡെസ്ക് ആകാശവാണി

പോലീസ് സേനയിൽ നിന്ന് പ്രത്യേക സുരക്ഷാ ഉദ്യോഗസ്ഥനായി വിരമിച്ച ഇദ്ദേഹം സംഭവ സ്ഥലത്ത് വച്ചു തന്നെ തൽക്ഷണം മരണപ്പെടുകയായിരുന്നു കൂടുതൽ വിവരങ്ങൾ ലഭ്യമായിട്ടില്ല

ഇന്ത്യയുടെ സംസ്ക്കാരം ചരിത്രം ഐതിഹൃങ്ങൾ എന്നീ മേഖലകൾക്ക് പുറമെ മഹാത്മാഗാന്ധിയുടെ തെരഞ്ഞെടുക്കപ്പെട്ട രചനകളുടെ ഡിജിറ്റൽ വിവരണവും പുസ്തക മേളയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് മഹാത്മാഗാന്ധിയുടെ ജീവിതവും പ്രവർത്തനങ്ങളും സംബന്ധിച്ച് ഡിജിറ്റൽ മീഡിയാ സംവാദം ഏകതാ പ്രതിമ ഇന്തൃയുടെ മറ്റ് പ്രധാന നേട്ടങ്ങൾ എന്നിവയെല്ലാം പവലിയനിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട് മഹാത്മാഗാന്ധിയുടെ തെരഞ്ഞെടുക്കപ്പെട്ട രചനകൾ അച്ചടി ഇലക്ട്രോണിക് രൂപത്തിലാക്കുന്നത് സംബന്ധിച്ച സെമിനാറും ലണ്ടൻ ഒളിമ്പിയിയിൽ സംഘടിപ്പിച്ചിട്ടുണ്ട്

തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശിക്കുന്ന ദിവസങ്ങളിൽ ജനപ്രതിനിധി സഭകളിൽ അംഗങ്ങളെ തെരഞ്ഞെടുക്കുന്നതിനായി പാർലമെന്ററി മണ്ഡലങ്ങളിൽ തെരഞ്ഞെടുപ്പു നടത്തുന്നതിനാണ് വിജ്ഞാപനം അനുമതി നൽകുന്നത് നൈസ് കരാർ വിയന്ന കരാർ ലൊകാർനോ കരാർ എന്നിവയ്ക്കും മന്ത്രിസഭ അംഗീകാരം നല്കിയിട്ടുണ്ട്

വ്യാപാരപരമായ തത്വങ്ങൾ അക്ഷരാർത്ഥത്തിൽ നടപ്പിലാക്കണമെന്ന് ആവശ്യപ്പെടുന്നതാണ് മാർഗ്ഗനിർദ്ദേശങ്ങൾ

ഇതേതുടർന്നാണ് ഉത്തരവാദിത്വ വ്യാപാരരീതി സംബന്ധിച്ച മാർഗ്ഗനിർദ്ദേശുങ്ങൾ രൂപീകരിച്ചത്

ക്ട്ബനികൾ ഉത്തരവാദിത്വ വ്യാപാര മാതൃക നടപ്പിലാക്കുന്നുവെന്ന് ഉറ്പ്പാക്കുന്നതിനായി വിവിധ പദ്ധതികളാണ് ഗവൺമെന്റ് നടപ്പിലാക്കുന്നതെന്ന് കോർപ്പറേറ്റ് കാര്യാലയം അറിയിച്ചു

കീഴ് കോടതികളുടെ വിധിയുടെ അപ്പീലിനായി ബോംബെ കോടതിയെയാണ് ദാദ്ര നഗർ ഹവേലിയിലെ ജനങ്ങൾ ഇതുവരെ ആശ്രയിച്ചിരുന്നത് ഇതിനാണ് ഭേദഗതിയിലൂടെ മാറ്റം വരിക

ഇത് സംബന്ധിച്ച് ഐക്യരാഷ്ട്ര സഭ നിഷ്കർഷിക്കുന്ന എല്ലാ മാനദണ്ഡങ്ങളും മസൂദ് അസറിന് ബാധകമാണെന്നും അമേരിക്ക വ്യക്തമാക്കി ഒരു റിപ്പോർട്ട് വിഷയത്തിൽ ചൈനയുടെ നിലപ്പ്ട് പൊതു താൽപ്പര്യത്തിനും മേഖലയിലെ സ്ഥിരതയ്ക്കും സ്മാധാനത്തിനും തടസമുണ്ടാക്കുന്നതാണ്ണെന്ന് അമേരിക്കൻ സ്റ്റേറ്റ് ഡിപ്പാർട്ടമെന്റ് വക്താവ് റോബർട്ട് പല്ലാഡിനോ മാധ്യമങ്ങളോട് പറഞ്ഞു തീവ്രവാദ വിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഐകൃരാഷ്ട്രസഭയിലടക്കം ഇന്ത്യയും അമേരിക്കയും സഹകരിച്ച് പ്രവർത്തിക്കുമെന്നും വക്താവ് ഉറപ്പ് നൽകി മസൂദ് അസറിനെ ആഗോള തീവ്രവാദിയായി പ്രഖ്യാപിക്കുന്നത് സംബന്ധിച്ച് ഐക്യരാഷ്ട്രസഭ സുരക്ഷാ സമിതി തീരുമാനമെടുക്കാനിരിക്കെയാണ് അമേരിക്കയുടെ ഈ നിലപാടെന്നത് ശ്രദ്ധേയമാണ് അസറിനെ ആഗോള തീവ്രവാദിയായി പ്രഖ്യാപിക്കണമെന്ന ആവശ്യത്തിനെതിരെ വാദങ്ങൾ സമർപ്പിക്കാനുള്ള സമയം ഇന്ന് അവസാനിക്കും പുൽവാര ഭീകരാക്രമണത്തിന്റെ ഉത്തരവാദിയം ജെയ്ഷ് ഇ മുഹമ്മദ് ഏറ്റെടുത്തതോടെ അമേരിക്ക ഫ്രാൻസ് ലണ്ടൻ എന്നീ രാജ്യങ്ങൾ അസറിനെ ആഗോള തീവ്രവാദിയാക്കണമെന്ന് യു

എൻ

നേരത്തെ ഇന്ത്യാ മസൂദ് അസറിനെ യു എൻ പ്രഖ്യാപിത ആഗോള തീവ്രവാദിയാക്കണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ ഇക്കാര്യത്തിനെതിരായി നീങ്ങിയ ചൈനയുടെ തീരുമാനം ഇപ്പോൾ എന്തെന്ന് ഉറ്റുനോക്കുകയാണ് ലോകരാഷ്ട്രങ്ങൾ ആഗോള തീവ്രവാദിയായി അസറിനെ പ്രഖ്യാപിച്ചാൽ ഇയാളുടെ ആസ്തികൾ മരവിപ്പിക്കുകയും യാത്ര നിരോധനം ഏർപ്പെടുത്തുകയും ചെയ്യും

എസ് എൽ